പ്രസംഗത്തിൻമേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ ഇന്ന് മറുപടി നൽകും

അംഗത്വത്തിനുള്ള സ്ഥാനാർത്ഥിത്വത്തിന് ഏഷ്യ പസഫിക് ഗ്രൂപ്പിന്റെ പൂർണ പിന്തുണ

സബ്സിഡിയില്ലാതെ ഹജ്ജിനു പോകുമെന്ന് കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്പി

അഴിമതിക്കെതിരെ ഗവൺമെന്റ് ശക്തമായി പോരാടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നല്ലൂ ലോക്സഭയിൽ നടന്ന നന്ദിപ്രമേയ ചർച്ചയിൽ മറുപടി പറഞ്ഞു ശ്ക്തവും സുരക്ഷിതവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ഗവണ്മെന്റും പ്രതിപക്ഷവും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറ്ഞു

മോദി പറഞ്ഞു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ എം പി മാരോടും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു

എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക് പോംപിയോ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരന്ദ്രമോദിയെ സന്ദർശിച്ച് സംഭാഷണം നടത്തി

എസ് ബന്ധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ രണ്ടു നേതാക്കളും ചർച്ച ചെയ്തതായി വിദേശകാരൃ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ ടിറ്ററിൽ അറിയിച്ചു തന്ത്രപരമായ പങ്കാളിത്തം വർധിപ്പിക്കുകയാണ് ഇന്ത്യ യു

എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആശയവിനിമയം നടത്തി മൂന്നു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് മൈക് പോംപിയോ ന്യൂഡൽഹിയിൽ എത്തിയത് ഇന്ത്യയിലെയും യു എസിലെയും വാണിജ്യ വ്യാപാര പ്രതിനിധികളെയും പോംപിയോ അഭിസംബോധന ചെയ്യും ഇറാനെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിയിൽ ഉണ്ടായ പ്രതിസന്ധികളും ചർച്ചാ വിഷയമാകും

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

ആഗോളതലത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ ഉച്ചകോടിയുടെ പരിഗണനയിൽ വരും ഭക്ഷ്യസുരക്ഷ ഊർജ്ജ സുരക്ഷ ആഗോള ധനകാര്യ സുസ്ഥിരത ആഗോള ഭീകരതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഡിജിറ്റൽ പണമിടപാട് വേഗത്തിലാക്കാനുള്ള നൂതന സംരംഭങ്ങൾ നിർമ്മിത ബുദ്ധി എന്നിവയാണ് ഉച്ചകോടി ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ ഇരുപതിലധികം രാഷ്ട്രങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും ബ്രിക്സ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അനൌപചാരിക കൂടിക്കാഴ്ചകളും ഉഭയകക്ഷി ചർച്ചകളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും

ഇന്ത്യൻ സംഘത്തിന്റെ പ്രതിനിധിയായാണ് പ്രഭു ഒസാക്കയിലെത്തിയത് ഇന്നലെ നടന്ന പ്രാഥമിക ചർച്ചകളിൽ ആഗോള വിഷയങ്ങൾക്ക് ഉയർന്ന പരിഗണന ലഭിച്ചതായി സുരേഷ് പ്രഭു ട് ട്വീറ്റ് ചെയ്തു ഇന്ത്യയുടെ മുൻഗണനകളും യോഗത്തിൽ വിലയിരുത്തിയതായി സുരേഷ് പ്രഭു പറഞ്ഞു ന്യൂസ്ഡെസ്ക് ആകാശവാണി

എന്നിലെ ഇന്തൃയുടെ സ്ഥിരം പ്രതിനിധി സയ്ദ് അക്ബറുദ്ടീൻ നന്ദി പറഞ്ഞു

പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെ നേരിട്ട് വിവരം അറിയിക്കും

ഭീകരരുടെ സാന്നിധ്യുട് അറിഞ്ഞതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഏറ്റുമുട്ടലുണ്ട്ടിയത് രാഷ്ട്രീയ റൈഫിൾസും ഭീകര വിരുദ്ധ സേനയും സ്യുക്തമായാണ് തെരച്ചിൽ നടത്തിയത് പ്രദേശത്ത് സി

എഫിന്റെ കൂടുതൽ അംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്

അഞ്ച് അംഗങ്ങൾ കാലാവധി പൂർത്തിയാക്കി പിരിയുന്നതിനെ തുടർന്നാണ് ഒഴിവ് വരുന്നത് ഇതിൽ നാലു പേർ എ ഐ എ

എം കെ അംഗങ്ങളും ഒരാൾ സി

യിലെ ഡി രാജയുമാണ്

അംഗം കനിമൊഴി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ആറാമത്തെ സീറ്റ് ഒഴിഞ്ഞത്

ഒന്നാം തീയതി വിജ്ഞാപനം പുറപ്പെടുവിക്കും തമിഴ്നാട് നിയമസഭയിൽ എ ഐ എ

എം

എം

ഇടുക്കി നെടുങ്കണ്ടത്തെ കസ്റ്റഡി മരണം സംബന്ധിച്ച് അടിയന്തര പ്രമേയ നോട്ടീസിനെ തുടർന്നായിരുന്നു ഇറങ്ങിപ്പോക്ക് സംഭവത്തിന് ഉത്തരവാദികൾ പൊലീസിലെ എത്രി ഉന്ന്തരായാലും ഗവൺമെന്റ് ശക്തമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നില്ളവിൽ ക്രൈം ബ്രാഞ്ചാണ് കേസ് മറുപടി നൽകി

ഇതേ തുടർന്നാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്

ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കായി നടത്തൂന്ന് ദിദിന പരിശീലന പരിപാടി ഡൽഹിയിൽ ഉദ്ഘാടനും ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി

തീർത്ഥാടകർക്ക് സുരക്ഷയും മികച്ച സൌകര്യങ്ങളും ഒരുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഫലപ്രദമായ നടപടികളാണ് എടുത്തിരിക്കുന്നതെന്നും പിഴവില്ലാത്ത വിധമാണ് സംവിധാനങ്ങൾ ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു

ലഹരി മരുന്നിന്റെ വിപത്തിനെതിരെ കൂട്ടായ യത്നം വേണമെന്ന് ഉപരാഷ്ട്രപതി എം

ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ സംഘടനകൾ സജീവമായി പങ്കെടുക്കണമെന്ന് ശ്രീ നായിഡു ട്വീറ്റ് ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

എൻ പ്പൊതുസഭ ഇതിനായി ഈ ദിനം തെരഞ്ഞെടുത്തത് ലഹരി മരുന്ന് മുക്ത സമൂഹം യാഥാർത്ഥ്യമാക്കാൻ ആഗോള കർമ്മ പദ്ധതി വേണ്മെന്നും യു എൻ

നീതിയും ആരോഗ്യവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ആശയം മുന്നോട്ട് വച്ചിട്ടുള്ളത്

വ്യക്തികൾ സന്നദ്ധ സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ സജീവ സാന്നിധ്യം പ്രചാരണ രംഗത്ത് ഉണ്ടാവണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്

കേരളത്തിൽ സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇതു സംബന്ധിച്ച നിർദ്ദേശത്തിന് മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകിയതായി ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രി അസ്സദുസ്സമൻ ഖാൻ അറിയിച്ചു

ഏഴ് മത്സരങ്ങളിൽ നിന്ന് എട്ട് പോയിന്റുമായി ഇപ്പോഴും നാലാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടിന് അടുത്ത രണ്ട് മത്സരങ്ങളും നിർണ്ണായകമാണ് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലാന്റ് പാകിസ്ഥാനെ നേരിടും

കേന്ദ്ര ഇലക്ട്രോണിക്സ് വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ ദേശീയ ഇ ഗവേർണൻസ് വിഭാഗമാണ് ആപ്പ് വികസിപ്പിച്ചെടുത്തത്